മാനന്തവാടിപുൽപ്പള്ളി നിലമ്പൂർ ്ട്ര അരീക്കോട് എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളെ അവർ ് അടിസംബോധന ചെയ്യും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെ ച്ചൂരി പി ബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എന്നിവരും വിവിധ കേന്ദ്രങ്ങളിലെ യോഗങ്ങളിൽ സജീവമാണ്

കൊച്ചിയിലെ സ്ക്ട്രാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് രക്തം കട്ടപിടിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണം

അതിനിടെ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തിയ കുട്ടിയുടെ അമ്മയെ ഏലൂർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു

പരിപാടി ആക്ടിശവാണിയുടെ കേരള നിലയങ്ങൾ തത്സമയം പ്രക്ഷേപണം ച്ചെയ്യും